പ്രളയമേഖലയിൽ വിതരണം ചെയ്യാൻ കേന്ദ്രം നാല് വിമാനങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ തിരുവനന്തപുരത്തെ ത്തിച്ചു

ഇന്നലെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭൌതികശരീരം ഇന്ന് വൈകിട്ട് ഡൽഹി രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ സംസ്കരിക്കും

ന്യൂഡൽഹിയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേ യിയുടെ സംസ്കാരചടങ്ങിൽ പങ്കെടുത്തശേഷം വൈകിട്ടായി രിക്കും അദ്ദേഹം കൊച്ചിയിൽ എത്തുന്നത് മുഖ്യമന്ത്രി പിണ റായി വിജയനുമായി ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രി നാളെ പ്രള യമേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തുമെന്ന് കേന്ദ്രസഹ മന്ത്രി അൽഫോൺസ് കണ്ണന്താനം തിരുവനന്തപുരത്ത് അറിയി ച്ചു ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കേന്ദ്രസേനയെ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

എസ് എഫിന്റെ രണ്ട് യൂണിറ്റുകളും ദുരന്ത പ്രതികരണ സേനയും രക്ഷാപ്രവർത്തന ത്തിന് ഇറങ്ങും ദുരന്തം നേരിടുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൈകോർത്ത് പ്രവർത്തിക്കുമെന്നും കണ്ണ ന്താനം വൃക്തമാക്കി നേരത്തെ പ്രളയക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലും അൽഫോൺസ് കണ്ണന്താനം പങ്കെടുത്തു

ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലുമാണ് കൂടുതൽ പേരും മരിച്ചത്

ജില്ല മുൻപെങ്ങുമുണ്ടാകാത്ത തരത്തിൽ വ്യാപകമായ വെള്ളപ്പൊക്കം നേരിടുകയാണ്

കുതിരാനിൽ മണ്ണിടിഞ്ഞുവീണ് തിരുവനന്തപുരം സ്വദേശി യായ ലോറി ഡ്രൈവർ മരിച്ചു പാലക്കാട്ട് മഴക്കിടെ തകരാറിലായ ട്രാൻസ്ഫോർമർ നന്നാ ക്കുന്നതിനിടെ കെ എസ് ഇ

അയ്യപ്പുരം സ്വദേശി രഘുനാഥാണ് മരിച്ചത് കൊല്ലം മൈനാഗപ്പള്ളിയിൽ വെള്ളക്കെട്ടിൽ നിന്നുകൊണ്ട് സിച്ച് ഓൺ ചെയ്ത ഇതരസംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു

രക്ഷാബോട്ടുകൾക്ക് പുറമെ സ്വകാര്യ മത്സ്യബന്ധന ബോട്ടുകളും ആളുകളെ ക്യാമ്പുകളി ലെത്തിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്

മേഖലയിൽ പെരിയാറിന്റെ ഇരുവശങ്ങളിലെയും പ്രധാന പട്ടണങ്ങളും ഗ്രാമങ്ങളും വെള്ളം കയറിയ നിലയിലാണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെ ട്ടു ഇടുക്കി ചെറുതോണി അണക്കെട്ടിലും മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് പരമാവധിയോട് അടുത്തുതന്നെ തുടരു കയാണ്

ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ചെറുതോണിയിൽനിന്ന് കൂടുതൽ വെള്ളം പുറത്തുവിടുന്നതിനെക്കുറിച്ച് ഇന്ന് രാവിലെ ചേരുന്ന അവ ലോകന യോഗത്തിനുശേഷം തീരുമാനമെടുക്കുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടു തൽ വെള്ളം ഇടുക്കിയിലെത്തുന്ന സാഹചര്യം പരിഗണിക്കും ചെറുതോണിയിലെ ഷട്ടറുകൾ കൂടുതൽ തുറന്നാൽ പെരി യാറിന്റെ തീരങ്ങളിലും ആലുവയടക്കം മേഖലകളിലും വെള്ള പ്പൊക്കക്കെടുതി വർദ്ധിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കു ന്നു ഇടുക്കി മേഖലയിൽ വൈദ്യുതി വിതരണം നിലച്ചതോടെ വാർത്താ വിനിമയ ബന്ധങ്ങളും നഷ്ടമായിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയുടെ മൂന്നിൽ രണ്ട് ഭാഗവും പ്രളയക്കെ ടുതിയിലാണ്

ദുരന്ത നിവാരണ സേനയും സൈന്യവും നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് വയനാട് ജില്ലയിലേക്ക് നാല് ചുരങ്ങളിലും വ്യാഹന ഗതാ ഗതം തടസ്സപ്പെട്ടു ചുരം പാതകളിൽ മണ്ണിടിഞ്ഞും മരം വീണുമുണ്ടായ തടസ്സങ്ങൾ നീക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങ ളിൽ വെള്ളക്കെട്ടുകളുണ്ടായതാണ് ഗൃതാഗതം സ്തംഭിക്കാൻ കാരണം ഊട്ടി ഗൂഡല്ലൂർ പാതയിലും നാടുകാണി ചുരത്തിലും പാറയും മണ്ണും വീണ് റോഡുകൾ ഗതാഗതയോഗ്യമല്ലാതാ യി

കണ്ണൂരിൽ രാത്രി മഴയ്ക്ക് അല്പം കുറവുണ്ടായി ഇരിട്ടി മേഖലയിലും മഴ കുറവായിരുന്നു ഇരിട്ടി പയഞ്ചേരിയിൽ ഡൊമിനിക് എന്നയാളെ ഒഴുക്കിൽപെട്ട് കാണാതായി കൊട്ടിയം പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞു

മലപ്പുറം ജില്ലയിൽ ഇന്നലെ രാത്രി മഴയിൽ അല്പം ശമ നമുണ്ടായെങ്കിലും കെടുതികൾ തുടരുകയാണ് കഴിഞ്ഞ ദിവ സങ്ങളിൽ നാൽപതോളം സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാ യി ഇവിടങ്ങളിൽ ഇപ്പോഴും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് ഭാരതപ്പുഴ കരകവിഞ്ഞതിനെത്തുടർന്ന് നിരവധി കുടും ബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി

വെള്ളക്കെട്ട് കാരണം തൃശൂർ കോഴിക്കോട് പാതയിലും യാത്രാക്സേശം അനുഭവപ്പെടുന്നുണ്ട് കോട്ടയം ജില്ലയിൽ വ്യാപകമായ മഴയിലും വെള്ളപ്പൊ ക്കത്തിലും മിക്ക പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു ബസ് സർവ്വീസ് ഉൾപ്പെടെ ഗതാഗതം നിലച്ചു

പാലക്കാട് കൽപ്പാത്തി യാക്കര പുഴകൾ കരകവിഞ്ഞ തോടെ നഗരത്തിൽ പലയിടത്തും വീണ്ടും വെള്ളം കയറി

ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ ഗതാ ഗതം തടസ്സപ്പെട്ടു ശേഖരിപുരം റോഡിൽ പാലത്തിൽ ഒഴുക്കിൽപെട്ട കാറിൽനിന്ന് മൂന്നുപേരെ രക്ഷിച്ചു വാളയാർ ഡാമിന്റെ ഷട്ട റുകൾ കൂടുതൽ ഉയർത്തിയതോടെ കോരയാർ കർ കവിഞ്ഞു അമ്പതോളം വീട്ടുകാരെ ദുരിതാശാസ ക്യാമ്പുകളിലേക്ക് മാറ്റി

കഴിഞ്ഞ ബുധനാഴ്ച യാണ് റൺവേയിൽ വെള്ളം കയറിയതിനെത്തുടർന്ന് വിമാന ത്താവളം അടച്ചത് അതേസമയം മെട്രോ സർവ്വീസുകൾ പുനരാരംഭിച്ചു പ്രളയമേഖലയിൽ വിതരണം ചെയ്യാൻ കേന്ദ്രം അനുവ ദിച്ച ഭക്ഷ്യധാന്യങ്ങളുമായി നാല് വിമാനങ്ങൾ തിരുവനന്ത പുരത്തെത്തി

ആക്കുളത്തെ വ്യോമ സേനാ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇന്ന് പ്രളയബാധിത പ്രദേശങ്ങളിൽ എത്തിക്കും

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുമടങ്ങിയ ബഞ്ചാണ് വിഷയം പരിഗണിച്ചത് കേരളത്തിലെ ഗുരുതരമായ പ്രളയ സാഹചര്യം പരിഗണിച്ചാണ് നിർദ്ദേശം ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുമായും കേരള തമിഴ്നാട് ചീഫ് സെക്ര ട്ടറിമാരുമായും ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കി ഉച്ചയ്ക്ക് രണ്ടുമണിക്കുമുമ്പ് തീരുമാനം അറിയിക്കണമെന്നാണ് സുപ്രീംകോടതി ആവശ്യപ്പെട്ടത് രണ്ടുമണിയ്ക്ക് കോടതി കേസ് വീണ്ടും പരിഗണിക്കും ഇടുക്കി സ്വദേശി റസൽ ജോയി യുടെ ഹർജിയിലാണ് കോടതിനിർദ്ദേശം മുല്ലപ്പെരിയാർ ഡാമിന് കേടുപാടുണ്ടായി എന്ന തരത്തിൽ വ്യാജപ്രചാരണം നടത്തുന്നവർക്കെതിരെ ഐ ടി നിയമപ്ര കാരം നടപടിയെടുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പേമാരിയും പ്രകൃതി ദുരന്തങ്ങളും കാര്യക്ഷമമായി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരം വ്യാജ വാർത്തകൾ സാമൂഹ്യമാ ധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാ നാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കി

ചെങ്ങന്നൂർ കുട്ടനാട് താലൂക്കുകളിലാണ് മഴക്കെടുതി അതിരൂക്ഷമായത്

രക്ഷാപ്രവർത്തനത്തിൽ ഇന്ന് ജില്ലയിലെ മുഴുവൻ ഹൌസ്ബോ ട്ടുകളും പങ്കെടുക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ഇതിന് തയ്യാറാകാത്ത ബോട്ടിന്റെ ലൈസൻസ് റദ്ടാക്കി ഉടമ കൾക്കെതിരെ കേസെടുക്കുമെന്നും കലക്ടർ അറിയിച്ചു

അമ്പായത്തോട് പാൽചുരം കൊട്ടി യൂർ കേളകം മേഖലകളിൽ ഉരുൾപ്പൊട്ടി തളിപ്പറമ്പിനടുത്ത് ബക്കളം ലക്ഷംവീട് കോളനിയിൽ വീട്ട് തകർന്ന് മൂന്നുപേർക്ക് പരിക്കേറ്റു കാര്യങ്കോട് പുഴയിൽനിന്ന് വെള്ളം കയറിയതി നെത്തുടർന്ന് ചെറുപുഴ പഞ്ചായത്തിലെ ഇടക്കോളനി കാനം വയൽ കോളനി എന്നിവിടങ്ങളിലെ ആളുകളെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് മാറ്റി

എസ് ഇ

പ്രളയ സാഹചര്യത്തിൽ കേരളത്തിലെ മിക്ക പ്രദേശങ്ങ ളിലും ട്രെയിൻ സർവ്വീസുകൾ ഇന്നുണ്ടാവില്ല

നെൽവേലി വഴി നാഗർകോവിലിലേക്കും മാത്രമായിരിക്കും ട്രെയിനുകൾ ഓടുക ഈ മേഖലയിലും വേഗനിയന്ത്രണം ഉണ്ടാ യിരിക്കും കേരളത്തിലെ പ്രളയക്കെടുതിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി

വിജയ രാഘവൻ ആവശ്യപ്പെട്ടു പ്രശ്ന പരിഹാരത്തിനും പുനരധി വാസത്തിനും ഗവൺമെന്റ് സാധ്യമായി എല്ലാം ചെയ്യുന്നു ണ്ടെന്നും കേന്ദ്രംകൂടി കൈയയച്ച് സഹായിച്ചാലേ സാഹചര്യം നേരിടാനാവൂ എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയി ച്ചു ഇന്നലെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭൌതികശരീരം ഇന്ന് വൈകിട്ട് ന്യൂഡൽഹി യിലെ രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ പൂർണ്ണ ഔദ്യോഗിക ബഹു മതികളോടെ സംസ്കരിക്കും കൃഷ്ണമേനോൻ മാർഗ്ഗിലെ ഔദ്യോഗിക വസതിയിൽ രാവിലെ എട്ടരവരെ പൊതുദർശ നത്തിന് വെച്ചശേഷം ഭൌതികദേഹം ഒൻപത് മണിയോടെ ബി ജെ പി ആസ്ഥാനത്തും പൊതുദർശനത്തിന് വെക്കും അവിടെനിന്ന് ഉച്ചയ്ക്ക് ഒരുമണിയ്ക്ക് വിലാപയാത്രയായി സംസ്കാരസ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ അറിയിച്ചു

ഈ ദിവസ ങ്ങളിൽ ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടും

സംസ്കാരം നടക്കുന്ന ഇന്ന് ഉച്ചയ്ക്കുശേഷം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസു കൾക്കും അവധിയായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രാലയം അറി യിച്ചു

ഹയർ സെക്കൻ്ററി വൊക്കേഷണൽ ഹയർ സെക്കൻ്ററി സ്കൂളുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ പൊതു വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സ്കൂളുകളുടെയും ഓണാവധി ഇന്ന് തുട ങ്ങും

കടുത്ത പ്രളയ സാഹചര്യ ത്തിലാണ് ഓണാവധി പുനഃക്രമീകരിച്ചത്